റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചതോടെ ബാങ്ക് ന് വായ്പകൾ ഇനി കുറഞ്ഞ പലിശ നിരക്കിൽ

ഭാഗങ്ങളിൽ തുടരുന്ന കനത്ത മഴയിൽ സാധാരണ ജനജീവിതം താറുമാറായി

ആഘോഷിക്കുന്നു

ജമ്മു കാശ്മീരിനുള്ള പ്രത്യേക പദവി കേന്ദ്രഗവൺമെന്റ് പിൻവലിച്ച സാഹചരൃത്തിലാണ് ശ്രീ

കേന്ദ്ര തീരുമാനത്തോടുള്ള ജനങ്ങളുടെ പ്രതികരണം അറിയുകയാണ് സന്ദർശന ലക്ഷ്യം കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു

അതേസമയം ജമ്മു കശ്മീരിൽ ഇതുവരെയും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതോടെ ഷോപ്പിയാൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ കടകൾ തുറന്നു തുടങ്ങി

റീസി കത്പാ ജില്ലകളിൽ ഗവൺമെന്റ് ഓഫീസുകളും ഇന്ന് മുതൽ പ്രവർത്തിച്ചു തുടങ്ങും

പതിനായിരത്തിലേറെ അന്യദേശ തൊഴിലാളികൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകാനായി ഇന്നലെ ഉധംപൂർ ജമ്മു റെയിൽവെ സ്റ്റേഷനുകളിൽ എത്തിയതായാണ് റിപ്പോർട്ടുകൾ

സുന്ദർബനി മേഖലയിൽ നിയന്ത്രണ രേഖയ്ക്കടുത്ത്ഷെല്ലാക്രമണവുംഉണ്ടായി ഇന്ത്യൻ സൈനൃംശക്തമായിതിരിച്ചടിച്ചു

കഴിഞ്ഞ നാല്ദിവസത്തിൽഇത്മൂന്നാംതവണയാണ് പാകിസ്ഥാൻഅതിർത്തിയിൽവെടി നിർത്തൽകരാർലംഘിക്കുന്നത്

എൻ ബി വായ്പാ തട്ടിപ്പ് കേസിലെ മുഖ്യ സൂത്രധാരൻ എന്നു കരുതുന്ന ഗോകുൽ ഷെട്ടിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ സിബിഐ കോടതിയുടെ അനുവാദം തേടി കഴിഞ്ഞ വർഷം മാർച്ചിലാണ് പിഎൻബിയിലെ മുൻ ഡെപ്യൂട്ടി മാനേജറായ ഗോകുൽ ഷെട്ടിയെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്

ബി ഐ

ബി ഐ

ഐ വാർത്താകുറിപ്പിൽ അറിയിച്ചു

രാജേഷ്ഖന്നയുംജിതേന്ദ്രയുമായുളളകൂട്ടുകെട്ടിൽഓംപ്രകാശ്ബോളിവുഡ ിന് ആപ് കി കസം ആഖിർ ക്യോൻ അപ്നാപൻ ആശ അർപ്പൻ തുടങ്ങി നിരവധി ജനപ്രിയചലച്ചിത്രങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട്

കർഷകരെ സ്വയം പര്യാപ്തരാക്കാൻ ലക്ഷ്യമിടുന്നതാണ് പദ്ധതി എന്ന് സംസ്ഥാന കൃഷിമന്ത്രി അതുൽ ബോറ പറഞ്ഞു

ആറ് ലക്ഷത്തോളം കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ഈ വർഷം ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു

അട്ടപ്പാടിയിൽ വീടിന് മുകളിലേയ്ക്ക് മരം വീണ് ചുണ്ടകുളം ഉൌരിലെ കാരയും വയനാട് പനമരത്ത് കാക്കത്തോട്ടെ വീട്ടമ്മയായ മുത്തുവുമാണ് മരിച്ചത്

മഹാരാഷ്ട്ര ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലും മഴ നാശം വിതക്കുകയാണ്

മുഖ്യമന്ത്രി ബി

യദ്യൂരപ്പ ബലഗവിയിലെത്തി രക്ഷാപ്രവർത്തനങ്ങൾ വിലയിരുത്തി

ഒഡീഷയിൽ മാൽക്കൻഗിരി റായഗഡ് കോരാപുട്ട് കന്ധമാൽ ഗജപതി തുടങ്ങിയ ജില്ലകൾ വെള്ളത്തിനടിയിലായി

സ്വാതന്ത്യ സമരത്തിൽ പങ്കെടുത്ത ധീര യോദ്ധാക്കളെയും പോരാട്ടത്തിൽ ജീവത്യാഗം ചെയ്ത വൃക്തികളെയും രാഷ്ട്രം ഇന്ന് അനുസ്മരിക്കുന്നു

ഇന്ത്യിട്ടെയ് കണ്ടെത്തൽ എന്ന വിഖ്യാതമായ പുസ്തകം ജവഹർലാൽ ന്റെഷ്റു രചിച്ചത് അഹമ്മദ്നഗർ കോട്ടയിൽ വച്ചാണ്

ശക്തിയാർജ്ജിക്കുന്ന ലക്കിമ ചുഴലിക്കാറ്റ് കാരണം തായ്വാനിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു വെള്ളിയാഴ്ച വരെ തായ്വാനിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട്

ഡെങ്കി ബാധിതരിൽ പകുതിയിലധികം പേരും ഡാക്കയിലാണ്

ഇന്ത്യൻ സമയം രാത്രി ഏഴുമണിക്ക് ഗുയാനാ ന്റാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം

പാകിസ്ഥാനിൽ നിന്ന് ഭീകരവാദം ഇല്ലാതാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനാണ ്സെനറ്റ് അംഗങ്ങളായ റോബർട്ട് മെൻഡൻസും എലിയട്ട് ഇഞ്ചലും സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടത് മെൻഡൻസ് വിദേശകാര്യ സമിതിയുടെ നിർണ്ണായകഅംഗവും ഇഞ്ചൽ അധ്യക്ഷനുമാണ്